കോവിഡ് പ്രതിരോധവും വാക്സിൻ വിതരണവും സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി ഇന്ന് ചർച്ച നടത്തും

സമാപന സമ്മേളനത്തെ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളോട് കേന്ദ്രം

ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന് ഒരുക്കങ്ങൾ സജീവം

എരുമേലി പേട്ട തുള്ളൽ ഇന്ന്

എല്ലിൽ ജംഷഡ്പൂരിനെതിരെ കേരളാ ബ്ലാസ്റ്റേഴ്സിന് ജയം ചെന്നൈയിൻ ഒഡീഷ മത്സരം സമനിലയിൽ

ശനിയാഴ്ചയാണ് വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കുന്നത്

രാജ്യത്തെ കോവിഡ് വ്യാപനവും പ്രതിരോധവും സംബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത്

ഓക്സ്ഫോഡ് സർവകലാശാല വികസിപ്പിച്ച് ഇന്ത്യയിലെ സെരും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് ഐ സി എംഷ്ട്രറീന്റെ സഹകരണത്തോടെ ഭാരത് ബയോടെക് നിർമ്മിച്ച ഇത്പൂയുടെ സ്വന്തം കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് നില്പ്പിൽ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുള്ളത്

വാക്സിൻ വിതരണത്തിന്റെ തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിലയിരുത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുൻനിര പോരാളികളുമടക്കമുള്ള ഏകദേശം മൂന്ന് കോടി പേർക്കാണ് ആദ്യം വാക്സിൻ നൽകുന്നത്

രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തു യുവതീ യുവാക്കൾ യൂത്ത് പാർലമെന്റിൽ പങ്കാളികളാകും

പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് യുവ ഉത്സാഹ് നയേ ഭാരത് കാ സംഘടിപ്പിക്കുന്നത് ദേശ പുരോഗതിയ്ക്കും വികസനത്തിനും യുവജനങ്ങളുടെ പങ്കാളിത്തം പ്രാധാനൃം അർഹിക്കുന്നുവെന്ന് കേന്ദ്ര കായിക യുവജന ക്ഷേമ സഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു

യുവാക്കളാണ് രാജൃത്തിന്റെ വികസനത്തെ വഴിതിരിച്ചു വിടുന്ന ചാലകശക്തിയെന്നും ദേശീയ യുവജനോത്സവം യുവാക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കുമെന്നും ശ്രീ റിജിജു പറഞ്ഞു

കെ ശൈലജ

എറണാകുളം ജില്ലയിലാണ് ഏറ്റവുമധികം കേന്ദ്രങ്ങളുളളത്

പക്ഷിപ്പനി സ്ഥിരീകരിച്ച സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ കേന്ദ്രസംഘം നിരീക്ഷിക്കുന്നുണ്ട് പക്ഷിപ്പനി സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാ്യൂങ്ങൾ നടപടി കൈക്കൊള്ളണമെന്ന് കേന്ദ്ര മന്ത്രൂ ്ലയ്യം അറിയിച്ചു രാജ്യത്തെ മൃഗശാലകളിൽ നിന്നുള്ള പ്രതിദീനീറിപ്പോർട്ട് കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് നൽകണമെന്റ് ക്യേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്

കേന്ദ്രമന്ത്രി അമിത്ഷാ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ട്വിറ്ററിൽ അറിയിച്ചു കേന്ദ്രമന്ത്രി പ്രഹ്ളാദ് ജോഷി ചടങ്ങിൽ സംബന്ധിക്കും

വന്യജീവികളുടെ സുരക്ഷിത സഞ്ചാരം ഉറപ്പാക്കാനാണ് പദ്ധതി നടപ്പാക്കുന്നത് നാഗ്പൂർ ജപൽപൂർ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മിക്കുമെന്ന് ജാവ്ദേക്കർ ട്വിറ്ററിൽ അറിയിച്ചു

ഇ കിറ്റുകളുടെയും സ്യൂട്ടുകളുടെയും നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണെന്നും ഇത് റെക്കോർഡ് നേട്ടമാണെന്നും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സൂറത്ത് അന്താരാഷ്ട്ര ടെക്സ്റ്റൈൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി

കോവിസ് മാനദണങ്ങൾ പാലിച്ച് ആൾക്കൂട്ടവും ആഘോങ്ങളുമില്ലാതെ ചടങ്ങുകൾ മാത്രമാ്യാവും പേട്ടതുള്ളൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ അമ്പലപ്പുഴ സൃഷ്ടിച്ചത്തിന്റെ പേട്ടതുള്ളൽ കൊച്ചമ്പലത്തിൽ നിന്ന് ആരംഭിക്കൂം

സി ചെന്നൈയിൻ എഫ് സി മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു ഇന്ന് എ

കെ മോഹൻ ബഗാൻ മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും

സർക്കാർ അനുവദിച്ച സ്ഥലത്താണ് ഓഫീസ് സമുച്ചയങ്ങൾ നിർമിക്കുന്നത്

പത്തനാപുരം ഗാന്ധിഭവനിൽ ഇന്നലെ രാത്രിയായിരുന്നു മരണം